ശതമാനമായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം

എം

കോടിയിൽപരം കർഷകർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തതായി കേന്ദ്രം

അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് മീൻപിടുത്തത്തിന് പൂർണ നിരോധനം

രോഗബാധിതരുടെയും കോവിഡ് മരണങ്ങളുടെയും എണ്ണം കുറയ്ക്കാനും ലോക്ഡൌണിലൂടെ കഴിഞ്ഞു

വോയ്സ് കോവിഡുമായി ബന്ധപ്പെട്ട് ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യ വികസനം രോഗ നിർണയ പരിശോധനയ്ക്കുള്ള സൌകര്യങ്ങളുടെ വർദ്ധന വാക്സിൻ ഗവേഷണം സാങ്കേതിക മേഖലകളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയിൽ കാതലായ മുന്നേറ്റമുണ്ടാക്കാൻ ലോക്ഡൌൺ പ്പ് കൊലത്തു കഴിഞ്ഞു

കോവിഡ് പ്രതിരോധം നിയന്ത്രണങ്ങൾ പരിപാലനം ഏന്നിവയ്ക്കായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുക്മാ്പ്പം കേന്ദ്രം നിരവധി നടപടികൾ സ്വീകരിച്ചുവരികയാണ്

ഇ യിൽ നിന്ന് ആറു വിമാനങ്ങൾ സർവീസ് നടത്തും

ദുബായിൽ നിന്ന് കൊച്ചി കണ്ണൂർ കോഴിക്കോട് ഹൈദരാബാദ് തിരുവന്തപുരം എന്നിവിടങ്ങളിലേയ്ക്കും അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് സർവീസ് അതേസമയം വന്ദേഭാരത് മിഷൻ പ്രകാരം പ്രവാസികളുമായി താജിക്കിസ്ഥാനിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി

ഉത്തരേന്ത്യയിൽ വെട്ടുകിളി ശല്യം രൂക്ഷമായ സാഹചരൃത്തിലാണ് നടപടിപ്പ് മാജസ്ഥാനിലെ ബാർമർ ജോധ്പൂർ ജയ്പൂർ തുടങ്ങിയ ജില്ലക്കളിലും മധ്യപ്രദേശിലെ സത്ന ഗ്വാളിയോർ തുടങ്ങിയ ജില്ലകളിലുക് അതിരൂക്ഷമാണ് വെട്ടുകിളി ആക്രമണം ജില്ലാ ഭരണകൂടപ്പുമായി സഹകരിച്ചാണ് നിയന്ത്രണ പരിപാടികൾ നടപ്പാക്കുന്നത്

വിസാ നിയമങ്ങളുടെ ലംഘനം സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കൽ പകർച്ചവ്യാധി നിരോധനനിയമത്തിന്റെയും ദുരന്ത നിവാരണ നിയമത്തിന്റെയും നിരോധനാജ്ഞയുടെയും ലംഘനം എന്നിവയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ

ഒരാളെ പരിക്കുകളോടെ പിടികൂടിയിട്ടുണ്ട്

എൽ എഫ് ഐ സോണൽ കമാൻഡർ സച്ചിത് സിങ്ങുൾപ്പെടെ രണ്ട് മാവോയിസ്റ്റുകളെ സിംദേഗ പൊലീസ് ഇന്നലെ അറ്സ്റ്റ് ചെയ്തിരുന്നു

തെക്കൻ കശ്മീരിലെ പുൽവാമ ജില്ലയിലെ രാജ്പോറൃയിലാണ് കാറിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി സ്തു്രക്ഷാ സേന നിർവീര്യമാക്കിയത് ഇന്ന് രാവിലെ ചെക്ക് പോയിന്റിൽ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാർ നിർത്താതെ ബാരിക്കേഡുകൾ മറികടന്ന് പോവുകയായിരുന്നു തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തപ്പോൾ ഡ്രൈവർ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയുണ്ടായി

കണ്ടെടുത്തു

വോയ്സ് മറ്റ് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ കുടിയേറ്റ തൊഴിലാളികൾ തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കായി ഈ മാസം ഒന്നു മുതലാണ് ഇന്ത്യൻ്റെയിൽവേ പ്രത്യേക ശ്രമിക് ട്രെയിനുകൾ ആരംഭിച്ചത്

ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തർ പ്രദ്ദേശ് ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവൂട്ട്ട് കൂടുതൽ ട്രെയിനുകൾ സർവ്വീസ് ആരംഭിച്ചത് ഉത്തർ പ്രദ്ദേശ്ക് ബിഹാർ ഝാർഖണ്ഡ് മധ്യ പ്രദേശ് ഒഡീഷ എന്നിവുട്ടിങ്ങളിലേക്കാണ് ഏറ്റവുമധികം ട്രെയിനുകൾ എത്തിച്ചേർന്ന്ത് ഭക്ഷണപ്പൊതികളും ഒരു ക്ലോടിയിലധികം കുപ്പി കുടിവെള്ളവും യാത്ര ചെയ്യുന്ന കുടിയേറ്റ ക്യൂറ്റിലാളികൾക്കായി ഐ

സി ട്രെയിനുകളും റെയിൽവേ ആരംഭിച്ചിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജൂൺ വരെ പ്രതിമാസം ഒരു കിലോ പയർവർഗങ്ങൾ വീതം ഗുണഭോക്താക്കൾക്ക് സൌജന്യമായി ലഭിക്കും

സംസ്ഥാനത്തെ ബഗ്ദോഗ്ര ആന്ധൽ വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ന് സർവ്വീസുകൾ തുടങ്ങും രോഗലക്ഷണമില്ലാത്ത യാത്രക്കാർക്ക് മാത്രമേ വിമാനയാത്ര അനുവദിക്കുകയുള്ളുവെന്നും എല്ലാ യാത്രക്കാർക്കും സ്ക്രീനിംഗ് നിർബന്ധമാണെന്നും പശ്ചിമ ബംഗാൾ ക് സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറയുന്നു യാത്രക്ക്യിർ സാമൂഹിക അകലം പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പുറിയ്ടുന്നു

പ്രാഥമിക ആരോഗ്യ പ്രവർത്തകരുടേയും റവന്യു വകുപ്പ് ഉദ്യോഗസ്ഥരുടേയും ആശാ വർക്കർമാരുടേയും സഹായത്തോടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുകയെന്ന് കർണാടക ആരോഗൃ വിദൃാഭ്യാസ വകുപ്പ് മന്ത്രി ഡോ

മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പൂർണ നിരോധനം ഏർപ്പെടുത്തി കടലിൽ പോയവർ മടങ്ങിയെത്തുകയോ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തുകയോ ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്